ഫോനി ചുഴലിക്കാറ്റ് തീവ്രത കൈവരിക്കുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം

നാലാം ഘട്ട വോട്ടെടുപ്പിൽ മുതിർന്ന പൌരന്മാരുടെയും പങ്കാളിത്തം വർദ്ധിച്ചതായി ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷർ ഉമേഷ് സിൻഹ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചില അനിഷ്ട സംഭവങ്ങളൊഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയാണ് മുതിർന്ന ബി ജെ

നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ മുസാഫിർപൂരിലും ഉത്തർപ്രദേശിലെ ബഹ്റ്റായിച്ചിലും ബാരാബാങ്കിയിലും തെരഞ്ഞെടുപ്പ് റാലികളെ ്അഭിസംബോധന ചെയ്യും

ജെ

ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രാജസ്ഥാനിലെ ആൽവാറിലും ദൌസയിലും പ്രപ്പാരണ പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഫ്റുൽ ഗാന്ധി മധ്യപ്രദേശിലെ ടിക്കാംഘട്ട് ദമോഹ്പന്ന എന്നിവിടങ്ങളിലെ റാലികളെ അഭിസംബോധന ചെയ്യും

അധ്യക്ഷ മായാവതി ഉത്തർപ്രദേശിൽ പൊതു സമ്മേളനത്തിൽ പങ്കെടുക്കും

ഇന്നലെയായിരുന്നു നാമനിർദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം വ്യാഴാഴ്ച നാമനിർദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും

പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് വോട്ടിങ് യന്ത്രത്തിൽ കാണിച്ചതിനെ തുടർന്നാണ് ഈ ബൂത്തിൽ നടന്ന പോളിംഗ് അസാധുവാക്കിയത്

ഉന്നത നേതാക്കൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് തുടർ നടപടികൾക്കായി യോഗം ചേരുന്നത് ഈ യോഗത്തെ സംബന്ധിച്ച് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാർ മാധ്യമങ്ങളോട് നേരത്തെ കാര്യങ്ങൾ വൃക്തമാക്കിയിരുന്നു

ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദി ബി ജെ പി പ്രസിഡന്റ് അമിത് ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവർക്കെതിരെ ചട്ടം ലംഘിച്ചതായി ഉയർന്ന പരാതികളാണ് കമ്മീഷൻ ചർച്ചയ്ക്കെടുക്കുക ഇതോടൊപ്പം ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും ഭരണകക്ഷിയായിരുന്ന പി ഡി പിയ്ക്ക് നൽകിയിരുന്ന പിന്തുണ ബി ജെ പി പിൻവലിച്ചതോടെ ഇവിടെ മന്ത്രിസഭ ഇല്ലാതാകുകയായിരുന്നു ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലാണ് ജമ്മുകാശ്മീർ

ജെ പി അധ്യക്ഷൻ അമിത് ഷാ യ്ക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി നൽകിയ പരാതി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതൂരത്തിൽ പ്രസംഗിച്ചു എന്നാരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെട്ടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം നൽകണ്ണുമെന്നും ഹർജിയിൽ പറയുന്നു

പി സുസ്മിത്ാ ദേവാണ് അടിയന്തിര പ്രാധാന്യത്തോടെ ഈ ക്രേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിലെത്തിയിരിക്കുന്നത് ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗോഗോയുടെ അധ്യക്ഷതയിലുള്ള ബഞ്ചാണ് കേസ് പരിഗണിക്കുക

മറുപടി സത്യവാങ്മൂലം നൽകാൻ കൂടുതൽ സമയം ആവശ്യമായതിനാൽ ഹർജി മാറ്റിവയ്ക്കണമെന്നാണ് കേന്ദ്രഗവൺമെന്റിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമായ തീരുമാനം അറിയിച്ചിട്ടില്ല എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രി യശ്ചന്ത് സിൻഹ അരുൺ ഷോറി അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ എന്നിവർ റിവ്യൂ പെറ്റീഷൻ നൽകിയിട്ടുണ്ട്

വടക്കൻ കാശ്മീരിലെ പുൽവാമാ ജില്ലയിലെ ത്രാൽ ആവന്തിപുര മേഖലയിൽ നടന്ന തെരച്ചിലിനിടെയാണ് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകർ അറസ്റ്റിലായത് തദ്ദേശവാസികളുടെ താമസസ്ഥലത്തെ അഗ്നിക്കിരയാക്കുക സി ആർ

എഫ് ക്യാമ്പിനു നേരെയും സീന്നിയർ പോലീസ് ഓഫീസറുടെ വസതിക്ക് നേരെയും ട്യൂക്ട്രിന്ഡ് ആക്രമണം തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിയുളാണ് അറസ്റ്റിലായതെന്ന് പൊലീസ് വൃത്തങ്ങൾ അറിയിച്ചു

കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ദൂരദർശൻ ക്യാമറാമാനും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉൾപ്പെട്ടവരാണ് അറസ്റ്റിലായത് അർനാർപൂർ മേഖലയിൽ സംയുക്ത സേന നടത്തിയ തെരച്ചിലിനിടയിലാണ് മാവോയിസ്റ്റുകൾ അറസ്റ്റിലായത് ദന്തേവാഡയിലെ ഗീദാമിൽ നിന്ന് മൂന്ന് മാവോയിസ്റ്റുകളെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് അർനാർപൂരിൽ നിന്ന് മറ്റു മൂന്നു പേരെകൂടി അറസ്റ്റ് ചെയ്തത് ഇതിൽ നാല് പേരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു

വിട്ടയച്ചവരെ കറാച്ചി കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉയർന്ന സുരക്ഷയോടെ ലാഹോറിലേക്ക് കൊണ്ടുപോയി ഇവരെ വാഗാ അതിർത്തിയിൽ ഇന്ത്യയ്ക്ക് കൈമാറും

വിശദാംശങ്ങളുമായി പ്രിയ

ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടാകുന്ന സ്ഥിതിഗതികൾ ദേശീയ ക്രൈസിസ്സ് മാനേജ്മെന്റ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്ന് വിലയിരുത്തി നാളെയോടെ ഫോനി വടക്ക് പടിഞ്ഞാറായി നീങ്ങി പിന്നീട് ക്രമേണ വടക്ക് കിഴക്കോട്ട് ദിശ മാറാനാണ് സാധ്യത തെക്കൻ തീരത്തെ സംസ്ഥാനങ്ങളിൽ ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കാലാവസ്ഥാ നിരീക്ഷണവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിച്ച് വരീകൃയാണ്

മത്സ്യതൊഴിലാളികൾ കടല്ലിൽ പോകരുതെന്ന് സംസ്ഥാന ഗവൺമെന്റുകൾ മതിയായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കേരളത്തിലും തമിഴ്നാടിന്റെ വടക്കൻ തീരങ്ങളിലും ആന്ധ്ര പ്രദേശിന്റെ തെക്കൻ തീരങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ ഇടയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു

രാഹുൽമാത്രമാണ് മികച്ച പ്രകടനം നടത്തിയത് മാൻ ഓഫ് ദ മാച്ചായി ഡേവിഡ് വാർണറെ തിരഞ്ഞെടുത്തു ഇന്ന് ബംഗുളുരുവിൽ റോയൽചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ നേരിടും നിലവിൽ ഢൽഹ്ഗി ക്യാപ്പിറ്റൽസാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥ്റ്ന്നത്ത് രണ്ടാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിംഗ്സാണ് പ്ലേ ഓഫ്ട് മൽസ്രങ്ങൾക്കായി ശേഷിക്കുന്ന രണ്ട് ടീം ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല മുംബൈ ഇന്ത്യൻസും സൺറേസ്ഴ്സ് ഹൈദരാബാദും കൊൽക്കത്തയും ഈ സ്ഥാനങ്ങൾക്കായുള്ള പോരാട്ടത്തിലാണ്

എസ് നയതന്ത്ര കാര്യാലയത്തിനു മുന്നിൽ വെടിവയ്പ്പ് നടന്നു

ജീവനക്കാരും മറ്റുള്ളവരും നയതന്ത്ര കാര്യാലയത്തിന് ഉള്ളിലായിരുന്നതിനാൽ കാര്യമായ അപകടം ഉണ്ടായില്ല സംഭവത്തെക്കുറിച്ച് വിപുലമായ അന്വേഷണം വേണമെന്ന് യു

നയതന്ത്രകാര്യാലയം ആവശ്യപ്പെട്ടു ഹെയ്ത്തി എന്നുപറയുന്നത് ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാണ്

മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനുവേണ്ടി വലിയ കലാപങ്ങളാണ് ഇവിടെ നടക്കാറുള്ളത്

ന്യൂഡൽഹിയെ ബത്ര ആശുപത്രിയിൽ കുറച്ചു ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്

നാഷണൽ ഫിലിറ്റ് ഉഡ്പ്ലപ്പ്മെന്റ് കോർപ്പറേഷന്റെ പരസ്യങ്ങളിലൂട്ടെയും പുകവലിക്കെതിരായ പരസ്യത്തിലൂടെയും മലയാളിക്ളുടെ മനസ്സിലെ ശബ്ദസാനിധ്യമായിരുന്നു അദ്ദേഹം

ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന പരസ്യ വാചകത്തിലൂടെയാണ് ശ്രീ ഗോപൻ നായർ മലയാളികൾക്കെറെ സുപരിചിതനായത്

ഗോപന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു